പാസാക്കി

കർണാടക പ് മുഖ്യമന്ത്രിയായി ബി

യദിയൂരപ്പ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു തിങ്കളാഴ്ച വിശ്വാസവോട്ടു തേടും

ഇറാൻ പിടിച്ചെടുത്ത യു

മൂന്നുപേരെ മോചിപ്പിക്കാൻ ശ്രമം തുടരുന്നതായി വിദേശമന്ത്രാലയം

ഓർക്കുക ആഹ്താദിക്കുക സ്മരണ് പുതുക്കുക എന്നതാണ് ഈ വർഷത്തെ കാർഗിൽ ദിനാചരണത്തിന്റെ സന്ദേശം ഒരു റിപ്പോർട്ട്

രക്തസാക്ഷിത്വം വരിച്ച ധീര ജവാന്മാരോട് രാഷ്ട്രം എക്കാലവും കടപ്പെട്ടിരിക്കുകയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

വെങ്കയ്യനായിഡു ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു കാർഗിൽ യുദ്ധ വീരൻമാർക്ക് മുമ്പിൽ പ്രണമിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് തുടങ്ങിയവർ ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധ സ്മാരകത്തിൽ ധീരജവാന്മാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മൂന്ന് ദിവസത്തെ ചടങ്ങുകളാണ് രാജ്യവ്യാപകമായി നടന്നത്

പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ചണ്ഡിഗഡിലെ യുദ്ധസ്മാരകത്തിലാണ് കാർഗിൽ രക്തസാക്ഷികൾക്ക് ശ്രദ്ധാജ്ഞലി അർപ്പിച്ചത്

തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ നടന്നി കാർഗിൽ വിജയദിനാചരണത്തിൽ ദക്ഷിണവ്യോമ കമാൻഡ് ്രൂമെയാവി എയർമാർഷൽ ബി സുരേഷ് എയർ വൈസ് മാർഷൽ ബി ചന്ദ്രശേഖർ ബ്രിഗേഡിയർ സി

ആർക്കിയോളജിക്കൽ സർവ്വേ ഓഫ് ഇന്ത്യയാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത് ദീർഘകാല ജീവിതത്തേക്കാൾ വിലമതിക്കുന്നതാണ് രക്തസാക്ഷിത്വമെന്ന് ശ്രീ

രക്തസാക്ഷികളുടെ സ്മരണകൾ അനന്തകാലം നിലനിൽക്കുമെന്നും മന്ത്രി പറഞ്ഞു

കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സാമൂഹ്യും പ്രിതിബദ്ധത ഉറപ്പാക്കൽ ദേശീയ കമ്പനി നിയമ ട്രൈബ്യൂൺലി്റ്റെ ഉത്തരവാദിത്തം മാറ്റി നൽകൽ നിയമലംഘനങ്ങളുടെ ്പുന് ക്രമീകരിക്കൽ എന്നിവയാണ് പ്രധാന ഭേദഗതികൾ

യദിയൂരപ്പ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു

എൽ എ മാരുടെ കൂട്ടരാജിയെ തുടർന്നാണ് കോൺഗ്രസ് ജനതാദൾ സഖ്യ ഗവൺമെന്റ് തകർന്നത് കുമാരസ്വാമി അധികാരമൊഴിഞ്ഞതിനു പിന്നാലെയാണ് യദിയൂരപ്പ അധികാരമേൽക്കുന്നത് തിങ്കളാഴ്ച സഭയിൽ വിശ്വാസവോട്ട് തേടിയതിനു ശേഷം മന്ത്രിസഭ വികസിപ്പിക്കാനാണ് ബിജെപി പദ്ധതിയിടുന്നത്

എ

ഇവരിൽ ഒൻപത് ഇന്ത്യൻ ജീവനക്കാരെ മോചിപ്പിച്ചതായും അവർ സ്വദേശത്തേക്കുള്ള മടക്കയാത്രയിലാണെന്നും വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു ശേഷിക്കുന്നവരെയും ഉടൻ മോചിപ്പിക്കാൻ ഇറാനിലെ ഇന്ത്യൻ ദൌത്യസംഘം ആ രാജ്യത്തോട് സമ്മർദ്ദം ചെലുത്തി വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു

നദ്ദ പറഞ്ഞു രണ്ടാം എൻ

നദ്ദ പറഞ്ഞു

പ്രധാന്മൃന്ത്യായി വീണ്ടും ചുമതലയേറ്റശേഷമുള്ള രണ്ടാമത്തെ മൻകി ബാത്ത് പരിപാടിയാണിത്

വിവിധ വിഷയങ്ങളിലാണ് ഈ പരിപാടിയിലൂടെ പ്രധാനമന്ത്രി ആശയങ്ങൾ തേടുകയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും കഴിഞ്ഞമാസത്തെ മൻ കി ബാത്തിൽ ശുചിത്വ ചെയ്യുന്നത്

ഗുർഗാവോണിലെ മനേസർ പൊലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് സിബിഐക്കും അഴിമതി വിരുദ്ധ വിഭാഗത്തിനും കൈമാറുകയായിരുന്നു ഹരിയാന ഗവൺമെന്റ് സർവ്വീസിലെ ഉദ്യോഗസ്ഥർക്കും ചില സ്വകാര്യ വൃക്തികൾക്കും എതിരെയാണ് അന്വേഷണം നടക്കുന്നത്

കേസുമായി ബന്ധപ്പെട്ട് ഈ വർഷം ആദ്യം ദുബായിൽ നിന്ന് തൽവാറിനെ ഇന്ത്യയിലെത്തിക്കുകയായിരുന്നു ആയുധ ഇടപാടിലും കുറ്റാരോപിതനായ തൽവാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടും ഇയാൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് കേസെടുത്തിട്ടുണ്ട്

ഏഷ്യൻ വെള്ളിമെഡൽ ജേതാവ് ദീപക്സിംഗ് ഉൾപ്പെടെ നാല് പുരുഷതാരങ്ങളും ഫൈനലിൽ പ്രവേശിച്ചു

ഗ്രാം വിഭാഗത്തിൽ ബ്രിജേഷ് യാദവ് എന്നിവരാണ് സ്വർണ്ണ മെഡലിനായി ശക്തി പരീക്ഷണം നടത്തുന്നത്

സെമിഫൈനലിൽ ജപ്പാൻതാരം കെന്റോ മൊമോട്ടയാണ് എതിരാളി ഇതേസമയം ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് പി

കാർട്ടർഫൈനലിൽ അകാനെ യാമഗുച്ചിയോടാണ് സിന്ധു പരാജയപ്പെട്ടത്

ചന്ദ്രന്റെ ദക്ഷിണധ്രുവം ലക്ഷ്മാക്കിയുള്ള ചന്ദ്രയാൻ ദൌത്യത്തിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായാണ് ഭ്രമണപഥം ഉയർത്തിയത്

ചന്ദ്രയാൻ രണ്ടിന്റെ പ്രവർത്തനങ്ങൾ തികച്ചും സാധാരണ നിലയിലാണെന്ന് ഐ എസ് ആർ ഒ അറിയിച്ചു